ചർച്ചയ്ക്ക് ശേഷം ഇരുരാജ്യങ്ങളും തമ്മിൽ നിരവധി ധാരണാപത്രങ്ങളും ഒപ്പിടും വിവിധ സ്ഥാപന മേധാവികളുടെ യോഗത്തെയും ഇരുനേതാക്കളും അഭിസംബോധന ചെയ്യും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു എന്നിവരുമായും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ആചാരപരമായ വിരുന്ന് നൂൽക്കും

ഭാര്യ കിം ജ്ജിം സൂക്കും അദ്ദേഹത്തോടൊപ്പമുണ്ട് കഴിഞ്ഞ് വർഷം പ്രസിഡന്റായി ചുമതലയേറ്റ മൂൺ ആദ്യമായാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൂണും സായുക്ത്മായി നോയിഡയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബ്ബൈൽ ഫോൺ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു വളരുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയിൽ ഇത്തരം രാജ്യങ്ങൾക്ക് നിക്ഷേപത്തിന് ധാരാളം അ്വസരമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

നാല് ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകാനായി ഒരു ലക്ഷം ഗ്രാമങ്ങൾ കുറഞ്ഞ ചെലവിൽ ഫൈബർ ശൃംഖല വഴി ബന്ധിപ്പിക്കും ഗവൺമെന്റിന്റെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് എത്തിക്കാൻ ഗവൺമെന്റ് ഇ മാർക്കറ്റ് ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ

പദ്ധതിയുടെ പൂർത്തീകരണത്തിന് കൃത്യമായ സമയക്രമം നിശ്ചയിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി മേഖലയിലെ കാർഷിക പുരോഗതിക്ക് ഗുണകരമാണ് കനാൽ പദ്ധതി

ശാസ്ത്രസാങ്കേതിക മന്ത്രി ഹർഷ് വർധനും ദക്ഷിണ കൊറിയൻ മന്ത്രി യു യുങ്ങ് മിന്നും മൂന്നു കരാറുകളിൽ ഒപ്പിട്ടു ബയോ ടെക്നോളജി മേഖലയിലാണ് കരാർ കൌൺസിൽ ഫോർ സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ചും ദക്ഷിണ കൊറിയൻ നാഷണൽ റിസർച്ചും ത്രമ്മിലും ഐ ഐ ടി മുംബൈയും കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയും തമ്മിലാണ് മറ്റ് രൂണ്ട് കരാറുകൾ

വൈദ്യുതോപകരണങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മരുന്നുകൾ ഗതാഗത ഉപകരണങ്ങൾ എന്നിവയിലെ വിൽപ്പനയിലാണ് വർദ്ധനവ് ഉണ്ടായതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു

ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന മൂന്ന് ദിവസത്തെ പരിപാടിയിൽ നവ ഭാരത നിർമ്മിതിയിൽ പ്രവാസികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ചർച്ച നടത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ ലക്നൌവിൽ വെളിപ്പെടുത്തി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വാരാണസിയിൽ നടക്കുന്ന ഗംഗാ ആരതി അലഹബാദിലെ കുംഭമേള ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് എന്നിവ വീക്ഷിക്കാൻ അവസരം ലഭിക്കും

നെല്ല് പയറുവർഗ്ഗങ്ങൾ എണ്ണക്കുരു പരുത്തി എന്നിവയ്ക്ക് കേന്ദ്രഗവൺമെന്റ് ഏർപ്പെടുത്തിയ താങ്ങുവിലയാണ് ഇതിന് പ്രധാന കാരണം കാർഷിക വൃത്തിക്കായി ഉപകരണങ്ങളും ലഭ്യമാകുമെന്നതും കർഷകർക്ക് ആശ്വാസ്ട്രമായിട്ടുണ്ട്

സ്ക്രീൽ ഡവലപ്പ്മെന്റ് മിഷൻ ഡയറക്ടർ എ

സിംഗപ്പൂരുമായി സഹകരിച്ച് നോർത്ത് ഈസ്റ്റ് സ്കിൽ സെന്റർ ഈ വർഷം ഒക്ടോബറിൽ ആരംഭിക്കുമെന്ന് ശ്രീ

സംസ്ഥാനത്തെ നൈപുണൃ വികസന പദ്ധതികൾക്ക് മന്ത്രാലയം നല്ല പ്രോൽസാഹനം നൽകുന്നുണ്ട്

ഇരു സംസ്ഥാനങ്ങളും പദ്ധതിയിൽ അംഗമാകാൻ തത്പരരാണെന്ന് മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കി രണ്ടിടത്തും ശക്തമായ ആരോഗ്യ ഇൻഷറൻസ് പദ്ധതികളാണ് നിലവിലുള്ളതെന്നും ആയുഷ്മാൻ ഭാരത് വിഭാവനം ചെയ്യുന്നതിനേക്കാൾ വർദ്ധിച്ച അളവിൽ പോളിസി ഉടമകൾ ഇവിടുത്തെ പദ്ധതികൾക്കുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഇരു സംസ്ഥാനങ്ങളും നിലവിലെ പദ്ധതികൾക്ക് ഭംഗം വരാതെ ആയുഷ്മാൻ ഭാരതിന്റെ നടത്തിപ്പിനായി ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കി

സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എൻജിനീയറിങ് ആന്റ് ടെക്നോളജിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവ്വഹിക്കും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്രസിങ് റാവത്ത് കേന്ദ്രമന്ത്രി റാവു ഇന്ദർജിത്ത് സിങ്ങ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും

ഡിപ്ലോമ പിജിഡിപ്ലോമ ബിരുദം ബിരുദാനന്തര ബിരുദം തുടങ്ങി നിരവിധി കോഴ്സുകളാണ് ഇവിടെ തുടങ്ങുന്നത്

പ്രധാനമായും കാൻസർ രോഗത്തിനെതിരായ മരുന്നുകൾക്കാണ് ഈ ഇളവ്

ഏഷ്യാ പസഫിക്ക് വ്യാപാര ഉടമ്പടിയനുസരിച്ച് നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇരുരാജ്യങ്ങളും ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത് ഇന്ത്യയെ കൂടാതെ അയൽരാജൃങ്ങളായ ബംഗ്ലാദേശ് ലാവോസ് ശ്രീലങ്ക ദക്ഷിണകൊറിയ എന്നീ രാജൃങ്ങൾ ഇടമ്പടിയിൽ അംഗങ്ങളാണ്

വടക്കുള്ള ജില്ലകളിലും മലയോര മേഖലയിലും അതി തീവ്രമായ മഴയ്ക്കാണ് സാധ്യത കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ സാധൃതയുണ്ട് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ഗവൺമെന്റ് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി

മഴ ശക്തമായ വെള്ളപ്പൊക്ക സാധ്യതയുള്ള താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളതിനാൽ രാത്രി സമയത്ത് മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണം വിനോദ സഞ്ചാരികൾ കടലിൽ ഇറങ്ങാതിരിക്കുവാൻ മുൻകരുതലുകളെടുക്കണം പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരും മലയോരത്ത് ചെറിയ ചാലുകളിലൂടെ മലവെള്ളപാച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇവിടങ്ങളിൽ വാഹനങ്ങൾ നിർത്തരുത് ജില്ലാ അടിയന്തര സഹായ കേന്ദ്രങ്ങളുടെ ഫോൺ നമ്പരുകൾ പൊതുജനങ്ങൾക്കായി പ്രസിദ്ധപ്പെടുത്തുവാനും ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്

വെള്ളപ്പൊക്ക് ബാധിത പ്രദേശങ്ങളിൽ ഇപ്പോഴും നിരവധി പേർക്കായി തീരച്ചിൽ തുടരുന്നതായി ജാപ്പനീസ് ഗവൺമെന്റിന്റെ അറിയിപ്പിൽ പറയുന്നു കഴിഞ്ഞയാഴ്ചയാണ് ജപ്പാനെ പിടിച്ചുലച്ച ചുഴലിക്കാറ്റിനും ശക്തമായ മഴയ്ക്കും തുടക്കമായത്